പ്രചാരണം അവസാനിച്ചു കലാശക്കൊട്ട് കൊഴുപ്പിച്ച് മുന്നണികൾ വോട്ടെടുപ്പ് തിങ്കളാഴ്ച്ച

നടപ്പാക്കുമെന്ന് സംസ്ഥാന്റു ഗ്വൺമെന്റ് സുപ്രീംകോടതിയെ ആരിയിച്ചു

കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖൃമന്ത്രി പിണറായി വിജയൻ

പരിഹാരിക്കാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മന്ത്രി കെ

ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ നിന്ന് ബി സായ്പ്രണീത് പുറത്തായി

ഔദ്യോഗികമായിട് പരസ്യപ്രചാരണത്തിന് നാളെ വരെ അനുമതിയുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരു സമാധി പ്രമാണിച്ച് മൂന്നു മുന്നണികളും ഇന്ന് പരസ്യപ്രചാരണം അവസാനിപ്പിക്കുകയായിരുന്നു

വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തിങ്കളാഴ്ച ശമ്പളത്തോടെയുള്ള അവധി നൽകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ലേബർ കമ്മീഷണറോടും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് മരട് ഫ്ളാറ്റ് തീരദേശ നിയമം ലംഘിച്ച് നിർമ്മിച്ച മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കണമെന്നുള്ള സൂപ്രീംകോടതി വിധി നടപ്പാക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു വിധി നടപ്പാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് കോടതിയെ അറിയിച്ച ഗവൺമെന്റ് ഉത്തരവ് നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കിയിരുന്നു മരട് ഫ്ളാറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളാണ് സത്യവാങ്മൂലത്തിൽ വൃക്തമാക്കിയിട്ടുള്ളത് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിധി നടപ്പാക്കാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ചീഫ് സെക്രട്ടറി കോടതിയിൽ അറിയിച്ചു നിർമ്മാണത്തിൽ ചട്ടലംഘനം കണ്ടെത്തി ഫ്ളാറ്റ് പൊളിച്ച് മാറ്റാൻ കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് സെക്രട്ടറി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്

അതിനായി സഹമന്ത്രി ആരോഗ്യം ശുചിത്വം എന്നീ മേഖലകളിലും രാജ്യം പുരോഗതി കൈവരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സ്വച്ഛത പക്ഷാഡ സ്വച്ഛതാ ഹീ സേവ എന്നീ വിവിധ പരിപാടികൾ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

തെറ്റ് ചെയ്യുന്നവർ സമൂഹത്തിലെ പ്രധാനികളായാലും നടപടിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലത്തിന് മുൻകൂറായി കരാർ കമ്പനിക്ക് പണം നൽകിയതിൽ തെറ്റില്ലെന്ന് മുൻമന്ത്രി വി

വിഷയവുമായി ബന്ധപ്പെട്ട ഫയൽ താൻ കണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണ സംഘത്തിനു മുമ്പാകെ ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിട്ടില്ല

ഇബ്രാഹിംകുഞ്ഞ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

സുധാകരൻ പാലാരിവട്ടം പാലം നിർമ്മാണ കരാറെടുത്ത കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഇൌടാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്മന്ത്രി ജി സുധാകരൻ നഷ്ടം ഇൌടാക്കുന്നതിന് സമയപരിധി ഇല്ല ചട്ടമനുസരിച്ച് കമ്പനിക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മറൈൻ ആംബുലൻസ് കൊച്ചി കപ്പൽശാലയിൽ ഫിഷറീസ് വകുപ്പിന് കീഴിൽ നിർമ്മിക്കുന്ന് മറൈൻ ആംബുലൻസിന്റെ കീലിടൽ കർമ്മം മന്ത്രി ജെ

ശൈലജ വനിത ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ ഹെൽത്ത് കെയർ സേവനം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി കെ

രാജു പരിസ്ഥിതി ലോല പ്രദേശങ്ങളടക്കം വനമേഖലയുമായി ബന്ധപ്പെട്ട ഭൂമി തർക്കങ്ങൾ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തുന്നതിന് സെപഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കെ

പാലക്കാട് കല്ലേകുളങ്ങരയിൽ വനം അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനമേഖലയിൽ പുതിയ കൈയേറ്റങ്ങളുണ്ടെങ്കിൽ അത് ഗൌരവമായി കാണും ഭൂമിയില്ലാത്ത വനവാസികൾക്ക് ഭൂമി നൽകുന്ന ഗവർണമെന്റ് പദ്ധതി നടപ്പാക്കി വരികയാണ് വനമേഖല കൂടുതലായ പാലക്കാട് ജില്ലയിൽ വന്യജീവി ആക്രമണം നേരിടാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കും

മീറ്ററിൽ സൌരോർജ്ജ വേലി സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

വൈദ്യുതി കൊണ്ടു വരുന്നതിനും പ്രസരണത്തിനുമായി നടപ്പാക്കുന്ന വൻകിട ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ മറവിൽ നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

കിഫ്ബിക്ക് പണം കൊടുക്കുന്നവരെ പ്പിന്തിരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്

കിഫ്ബിയുടെ മറവിൽ സംസ്ഥാനത്ത് അഴിമതി നടക്കുന്നുഹ്പെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താ്വന

പേവിഷ പ്രതിരോധം ആലപ്പുഴ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നായക്കളുടെ അക്രമം ഉണ്ടായി സാഹചര്യത്തിൽ പേവിഷ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി മൃഗസംരക്ഷണ വകുപ്പ്

ആശുപത്രി ആക്രമണ്ട് ഒ്എഎഎ തിരുവനന്തപുരത്ത് വനിതാ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാരായയവരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിക്ഷേധിച്ച് സമരം ശക്തമാക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത നടപടി ഐഎംഎ അപലപിച്ചു

നാല് കോടി രൂപ ചെലവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട്

സ്വർണവില വർദ്ധിച്ചു

സായ് പ്രണീത് തോറ്റതോടെയാണ് ഇന്ത്യൻ സാന്നിധ്യം അവസാനിച്ചത്